ഐ ടി വിദ്യാർത്ഥിനി ഫാത്തിമയുടെ മരണത്തിൽ സഹപാ ഠികൾക്കും പങ്കുണ്ടെന്ന് പിതാവ് ലത്തീഫ് ആരോപിച്ചു

സിയാച്ചിനിൽ സൈനിക സേവനത്തിനിടെ മഞ്ഞുമല ഇടിഞ്ഞു വീണ് തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി നഴ്സിംഗ് അസിസ്റ്റന്റ് നായിക് അഖിൽ എസ്

വടക്കൻ കശ്മീരിലെ നിയന്ത്രണ രേഖക്ക ടുത്ത് കുപ്വാര ജില്ലയിൽ താങ്താർ സൈനിക പോസ്റ്റിൽ മഞ്ഞുമല ഇടി ഞ്ഞുവീണ് നാല് സൈനികർ മരിച്ചു

ഇന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബന്ദിപുരെ ഖുറൈ സെക്ടറിൽ മഞ്ഞുമല ഇടിഞ്ഞുവീണ് പട്രോളിംഗ് നടത്തുകയായിരുന്ന രണ്ട് സൈനി കർ അടിയിൽപ്പെട്ടെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തി

എക്സ് മീഡിയ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹാ യിച്ചുവെന്ന കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു രണ്ട് ലക്ഷം രൂപ കെട്ടിവെയ്ക്കാനും രണ്ട് ആൾജാമ്യം നൽകാനും ഉൾപ്പെടെ ഉപാധികളോടെയാണ് ജസ്റ്റിസ് ആർ ഭാനുമതി നേതൃത്വം നൽകുന്ന മൂന്നംഗ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് കോടതിയുടെ അനുമതി കൂടാതെ രാജ്യംവിട്ട് പോകരുതെന്നും കേസുമായി ബന്ധപ്പെട്ട് പരസ്യപ്രസ്താവനകൾ നടത്തരുതെന്നും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽക രുതെന്നും കോടതി നിർദ്ദേശിച്ചു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ആവ ശ്യപ്പെട്ടിട്ടുണ്ട് രദേഷ്ടെടു ശബരിമലയിൽ ദർശനത്തിന് അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ബിന്ദു അമ്മിണി നൽകിയ ഹർജി സുപ്രീംകോടതി അടുത്തിയാഴ്ച പരിഗണിക്കും മുതിർന്ന അഭിഭാഷകൻ കോളിംഗ് ഗോൺസാൽവെ ഇക്കാരൃം ശ്രദ്ധയിൽപ്പെ ടുത്തിയപ്പോഴാണ് അടുത്തയാഴ്ച പരിഗ്ണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചത് സുപ്രീംകോടതി വിധിയു ണ്ടായിട്ടും ഇവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്ന് ഇതി നായി സുപ്രീംകോടതിയുടെ ഉത്തർവ് കൊണ്ടുവരണമെന്ന് ആവശൃപ്പെട്ട് പരിഹസിച്ചുവെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു രദേഷ്ടെടു തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിന് പകരം ബാലറ്റ് പേപ്പർ കൊണ്ടു വരുന്നത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകി കോൺഗ്രസ് സി

എം ടി ആർ എസ് ബി

ഇത്തരം ആശുപത്രികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പിഴ ചുമത്തുമെന്നും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു

ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ നാവികശക്തിയാണ് ഇന്ത്യ

നാവികസേനയുടെ വിലപ്പെട്ട സേവനവും തൃാഗവും രാജ്യത്തെ സുരക്ഷിതമാക്കിയതായി അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഹ്രസ് വീഡിയോയും പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തു രുട്ടിട്ട്ട്ട്ട്ട്ട്ട ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കങ്ങൾ പരിഹരിക്കാൻ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ രംഗത്തുവരുന്നതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാ ണെന്ന് വിവിധ സഭാധ്യക്ഷന്മാർ ഓർത്തഡോക്സ് യാക്കോബായ സഭകളെ അറിയിച്ചതായാണ് വാർത്തയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സഭാതർക്കം പരി ഹരിക്കാൻ ഗവൺമെന്റ് നേരത്തെതന്നെ ശ്രമിക്കുന്നുണ്ട് അതിനായി മന്ത്രി സഭാ ഉപസമിതി രൂപീകരിച്ച് ശ്രമങ്ങൾ തുടർന്ന് വരികയാണ് നിരവധി തവണ കൂടിയാലോചനകൾ നടന്നുവെങ്കിലും ഒരുവിഭാഗത്തിന്റെ നിസ്സഹകരണമാണ് പ്രശ്ന പരിഹാരത്തിന് തടസ്സമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രശ്ന പരി ഹാരത്തിന് സഭാധ്യക്ഷന്മാർ മുൻകൈ എടുത്ത് നടത്തുന്ന ശ്രമത്തിന് ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയുമുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു രദ്ദമ്പ്പെട്ടറ കോതമംഗലം മാർത്തോമ്മ ചെറിയപള്ളി വിഷയത്തിൽ ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടു ഇതിനായി എറണാകുളം ജില്ലാ കലക്ടറെ ഇന്ന് കാണുമെന്ന് സഭാനേതാക്കൾ കൊച്ചി യിൽ അറിയിച്ചു പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും സ്ഥിതി ശാന്തമാ യാൽ ആരാധനയ്ക്കായി പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാ റാനുമാണ് ഹൈക്കോടതി നിർദേശിച്ചത്

ഡി

ഡി എസിലെ മൂന്നും എം

എ മാർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

എസ് യെദ്യൂരപ്പ നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ അതിനിടെ റാന ബെന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ആദായനികുതി എക്സൈസ് വകുപ്പുകൾ റെയ്ഡ് നടത്തി

ടി വിദ്യാർത്ഥിനി ഫാത്തിമയുടെ മരണത്തിൽ സഹ പാഠികൾക്കും പങ്കുണ്ടെന്ന് പിതാവ് ലത്തീഫ് ന്യൂഡൽഹിയിൽ ആരോപി ച്ചു മകളെ മാനസികമായി തകർക്കാനും തളർത്താനും ശ്രമിച്ച സഹപാഠിക ളുടെ പേരുകൾ എഴുതിവെച്ചിട്ടുണ്ടെന്നും ഇവ അനേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘത്തിന്റെ നില പാട് അറിഞ്ഞ ശേഷം ആരോപണ വിധേയർക്കെതിരെ വൃക്തിപരമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫാത്തിമയുടെ പിതാവ് അറിയിച്ചു പ്രധാനമ ന്ത്രിയെ കാണാനാണ് ലത്തീഫും കൂടുംബവും ഡൽഹിയിലെത്തിയത്

അന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ കേന്ദ്രഗവൺമെന്റിന് സമർപ്പിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കൈതമുക്കിലെ അമ്മയും കുട്ടികളും പട്ടിണിയിലായിരുന്നു എന്ന വാർത്ത വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് സുരേഷ് പറഞ്ഞു ശിശുക്ഷേമ വകുപ്പ് എഴുതി തയ്യാറാക്കിയ പേപ്പറിൽ കുട്ടികളുടെ അമ്മ ഒപ്പിടുകയാണ് ചെയ്തത് അമ്മ യുടെ പരാതിയിൽ അന്വേഷണം നടത്താതെയാണ് കമ്മീഷൻ തീരുമാനത്തി ലെത്തിയത് ശിശുക്ഷേമ സമിതി പ്രശ്നം കൈകാരൃം ചെയ്തതിൽ വീഴ്ച യുണ്ടായെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ അമ്മയുടെ ആവശ്യപ്രകാരം നടപടികൾ സ്വീകരിച്ചതാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി രദേഷ്ടെടു സാങ്കേതിക സർവകലാശാലയിലെ മാർക്കുദാനവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിന്റെ ഇടപെടൽ ഗവർണറുടെ ഓഫീസ് സ്ഥിരീകരിച്ച തായി റിപ്പോർട്ട് മന്ത്രി അധികാര പരിധി മറികടന്ന് ഇടപെട്ടെന്ന് ഗവർണ റുടെ സെക്രട്ടറി ഗവർണർക്ക് റിപ്പോർട്ട് നൽകി

എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ് സി ഇന്ന് ഒഡീഷ എഫ്

രദേഷ്ടെടു ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഗെയിംസിന് ഇന്ന് തുടക്കമാകും വൈകീട്ട് എ പ്രദീപ്കുമാർ എം

എ ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും തീരദേശവാസി കളിൽ പുതിയ കായിക സംസ്കാരം വളർത്തുന്നതിനും സൌഹൃദവും സ്നേഹവും ഊട്ടിഉറപ്പിക്കുന്നതിനുമാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ നിർദ്ദേശത്തിൽ ബീച്ച് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്

വൈകിട്ട് തമിഴ്നാട് പഞ്ചാബുമായും മധ്യപ്രദേശ് കർണാടകയുമായും ഏറ്റുമുട്ടും രദ്ദേഷ്ടങ കണ്ണൂരിൽ നാലാമത് ദേശീയ വനിത ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇ ന്നത്തെ മത്സരങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കും ഇന്ത്യൻ ഒളിമ്പി ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജീവ് മേത്ത മുഖ്യാതിഥിയായി പങ്കെടുക്കും രുട്ടിട്ട്ട്ട്ട്ട്ട്ട കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടു ത്ത കണ്ണൂർ ജില്ലയിലെ എല്ലാ മത്സരാർത്ഥികളെയും വെള്ളിയാഴ്ച ഉച്ചയ് ക്ക് കണ്ണൂർ ശിക്ഷക്ക് സദനിൽ അനുമോദിക്കും ജില്ലയിൽ എച്ച്

എസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളിനെയും രണ്ടാം സ്ഥാനം നേടിയ സക്കൂളിനെയും എച്ച് എസ് വിഭാഗത്തിൽ ഏറ്റവും കൂടു തൽ പോയിന്റ് നേടിയ സ്കൂളിനെയും രണ്ടാം സ്ഥാനത്ത് എത്തിയ സ്കൂ ളിനെയും അറബിക്ക് കലോത്സവത്തിന് ഒന്നാം സ്ഥാനത്ത് എത്തിയ സ്കൂ ളുകളെയും സംസ്കൃതോത്സവത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച സ്കൂളുകളെ ട യും പ്രത്യേകം അഭിനന്ദിക്കും

തനത് കലകളും പൈതൃക ഉത്പന്നങ്ങളും സംഗമിക്കുന്ന പ്രദർശന വിപണന മേളയിൽ ദിവസവും രാവിലെ പത്ത് മുതലാണ് പ്രവേശനം രാത്രി കലാ പരിപാടികൾ അവസാനിക്കുന്നതു വരെ പ്രവേശനം തുടരും രദ്ദേഷ്ടങ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇത്തവണ മുൻവർഷത്തേക്കാൾ കുറവ്

എം എസ് അയച്ചിട്ടുണ്ട് രദ്ദേഷ്ടങ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ്ലാന്റിംഗിനിടെ കാണാതായ വിക്രം ലാൻഡർ എവിടെയാണെന്ന് ഐ എസ് ആർ ഒ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെന്ന് ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കി

ആർ ഒ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ ശിവൻ വ്യക്തമാക്കി ദർവ്വെട്ടറ ഉള്ളിവില നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ഉള്ളിയുടെ സംഭ രണ പരിധി വെട്ടിക്കുറച്ചു

നേരത്തെ ചില്ലറ വിൽപ്പ നക്കാർക്ക് പത്ത് ടണ്ണും മൊത്ത വിൽപ്പനക്കാർക്ക് അൻപത് ടണ്ണും സംഭരി ക്കാമായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന ഉള്ളിക്ക് പരിധി ബാധകമല്ലെന്ന് ഉപ ഭോക്തൃകാരൃ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു